ഉത്സവകാലത്ത് കേരളത്തിൽ നിന്ന് കൂടുതൽ വിമാനസർവീ സുകൾ ആരംഭിക്കാൻ കേരള എംപിമാരുമായി വ്യോമയാന മന്ത്രി നടത്തിയ ചർച്ചയിൽ ധാരണ ഉന്നാവ് പീഡനക്കേസും അനുബന്ധക്കേസുകളും ഉത്തർപ്ര ദേശിൽ നിന്ന് മാറ്റുമെന്ന് സൂപ്രീംകോടതി അന്വേഷണ ത്തിന്റെ വിശദാംശങ്ങൾ ന്യൽകാൻ സിബിഐക്ക് നിർദേ ശം

തോമസ് ഐസക് മലങ്കര സ്പഭാതർക്കത്തിൽ സംസ്ഥാന ഗവ ഇന്നു നടത്താ നിരുന്ന ചർച്ച മാറ്റിവെച്ചു നോർത്ത് മലബാർ ചേംമ്പർ ഓഫ് കൊമേഴ്സിന്റെ അഗ്രി മീറ്റ് കണ്ണൂരിൽ ആരംഭിച്ചു മുത്തലാഖ് ബില്ലിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീ കാരം നൽകി

മൂന്ന് തലാഖ് ഒന്നിച്ച് ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് മൂന്നു വർഷത്തെ തടവ് ശിക്ഷ ലഭിക്കു ന്നതാണ് മുസ്തിം വനിതാ വിവാഹാവകാശ സംരക്ഷണ നിയമ ബിൽ എന്ന മുത്തലാഖ് നിരോധന ബിൽ

മറ്റുപാർട്ടികളുമായി കൂടിയാലോചിക്കാതെ ബില്ലുകൾ സഭയിൽ കൊണ്ടുവരികയാണെന്ന് പ്രതിപക്ഷം ലോക്സഭയിൽ കുറ്റപ്പെടുത്തി സഭ സമ്മേളിച്ച ഉടൻ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയും തൃണമൂൽ കോൺഗ്രസിലെ സൌഗധ റോയിയും ഡിഎംകെ അംഗം കനിമൊഴിയുമാണ് ആരോപണം ഉന്നയിച്ചത് അംഗങ്ങൾക്ക് ചർച്ചക്ക് തയ്യാറെടുക്കാൻ പോലും സമയം നൽകാതെ അവസാനനിമിഷമാണ് ബില്ലുകൾ പരിഗണി ക്കാനും പാസ്സാക്കാനും സഭയിൽ കൊണ്ടുവരുന്നതെന്ന് അവർ ആരോപിച്ചു ആരോപണം നിഷേധിച്ച പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കാര്യോപദേശസമിതിയും ഇക്കാര്യങ്ങൾ ചൂർച്ച ചെയ്യുന്നു ണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപ് രാഷ്ട്രീയപാർട്ടികളുടെ നേതാക്കുളെ അറിയിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുമെന്നും സ്പീക്കർ ഓംബിർള വ്യക്തമാക്കി നേതാ ക്കളെ പ്രത്യേകം ഇക്കാര്യം തന്റെ ഓഫീസ് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില്ല വെളളപ്പൊക്ക സ്ഥിതി ചർച്ച ക്കെടുക്കാത്തിൽ ചില അംഗുങ്ങൾ സഭയിൽ അസംതൃപ്തി പ്രക ടിപ്പിച്ചു ഉത്സവകാലത്ത് കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് കൂടുതൽ വിമാന് സർവീസുകൾ ആരംഭിക്കാൻ ധാരണ കേന്ദ്ര വ്യോമയാന മ്യ്തി ഹർദീപ്സിംഗ് പുരിയുമായി കേരള എംപിമാർ ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം

യുറോപ്പിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനും ഉത്സവകാലത്ത് കണ്ണൂ രിൽ നിന്ന് ഡൽഹിയിലേക്ക് കൂടുതൽ വിമാന സർവീസ് ആരംഭി ക്കാനും ധാരണയായിട്ടുണ്ട് സംസ്ഥാനത്ത് വിമാനത്താവള സ്വകാര്യ വത്കരണം സംബന്ധിച്ച് പ്രത്യേകയോഗം ചേരാനും തീരുമാനമായി കരിപ്പൂരിൽനിന്ന് ജിദ്ദയിലേക്ക് എയർ ഇന്ത്യയുടെ ജംബോ വിമാന സർവീസ് അടുത്തമാസം ആരംഭിക്കും

ഹജ്ജ് ഉംറ യാത്രക്കാർ ഒമാൻ എയർവേയ്സിന്റെ വിമാനത്തിൽ ഖത്തർ വഴിയാണ് യാത്ര ചെയ്യുന്നത് സൌദി ഉൾപ്പെടെ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഈ വഴി യാത്ര ദുഷ്കരമായി

എയർ ഇന്ത്യയുടെ ജംബോ സർവീസ് എത്തുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഉന്നാവ് പീഡനക്കേസും അനുബന്ധകേസുകളുടെയും വിചാ രണ ഉത്തർപ്രദേശിൽ നിന്ന് മാറ്റുമെന്ന് സുപ്രീര്കോടതി വ്യക്ത മാക്കി ഇതു സംബന്ധിച്ച ഉത്തരവ് ഉത്തരവാദ്യപ്പെട്ട് സിബിഐ ഓഫീ സിറിൽ നിന്ന് വിശദാംശങ്ങൾ അറിഞ്ഞൾേഷം ഇന്നു തന്നെ ഉണ്ടാ കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു പീഡനക്കേസിലെ പ്രതികൾ ഭീഷണിപ്പെടുത്തുന്നു വെനന് കാണിച്ച് പെൺകുട്ടിയുടെ ബ്ന്ധുക്ക്ൾ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്ത് പരിഗണിക്കുകയായിരുന്നു കോടതി

ഉന്നാവ് കേസ് അന്വേഷിക്കുന്ന സിബിഐ ഓഫീസർ ഡൽഹിക്ക് പുറത്തായതിനാൽ കേസ് നാളത്തേക്ക് മാറ്റണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർമേത്ത ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല സിബിഐ ഡയറക്ടർക്ക് ടെലഫോൺവഴി കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ച് കോടതിയെ അറിയിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഉത്തർപ്രദേശിലെ ഉന്നാവിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കൊടിക്കുന്നിൽ സുരേഷാണ് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് ജമ്മു കശ്മീരിലെ ബദ്ഗാം ജില്ലയിൽ ആയുധങ്ങളും വെടി ക്കോപ്പുകളുമായി ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു കോസിപ്പോരയിൽ സ്ഥാപിച്ച ചെക്ക് പോയിന്റിൽ ഇന്നലെ രാത്രി പരിശോധനക്കിടയിലാണ് ഇയാൾ അറസ്റ്റിലായതെന്ന് പൊലീസ് അറിയിച്ചു

പ്രളയസെസിന്റെ മറവിൽ വിലക്കയറ്റം ഉണ്ട്ടാക്കാൻ ശ്രമിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചാവക്കാട് കോൺഗ്രസ് പ്രിവർത്തികൻ നൌഷാദിന്റെ കൊല പാതകം ആസൂത്രിതമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്ത ല പറഞ്ഞു എസ്ഡിപിഐ ആണ് ആസൂത്രിക കൊലപാതകം നടത്തിയതെന്നും അന്വേഷണത്തിൽ പൊലീസിന് വീഴ്ച പറ്റിയ തായും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു

തൃശൂർ ചാവക്കാട്ട് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നൌഷാദ് എസ്

ഐ അക്രമത്തിൽ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം സംസ്ഥാനത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടരുന്നതിന്റെ തെളിവാണെന്ന് കെ

സി സി വർക്കിങ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു കേര ളത്തിൽ ക്രമസമാധാനനില തകർന്നെന്നും രാഷ്ട്രീയ കൊലപാ തകങ്ങൾ അവസാനിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകത്തിന് ഉത്തരവാദികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണ മെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു തൃശൂർ ചാവക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദ് വധ ക്കേസിലെ പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് ഡിഐജി എസ് സുദർശൻ തൃശൂരിൽ പറഞ്ഞു പ്രതികളെ ഉടൻ പിടികൂ ടും അന്വേഷണം ശരിയായ ദിശയിലാണെന്നും വീഴ്ചകൾ ഉണ്ടാ യിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊച്ചി പൊലീസ് അസി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം യൂണിവേഴ്സിറ്റി കോളജ് വിഷയത്തിൽ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി പൊലീസ് നടപ ടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പ്രപർത്തകർക്കെതിരെ പൊലീസ് ജലപീരങ്കി പ്രയോഗിച്ചു

തർക്കം നിലനിൽക്കു്ന്ന ചില പള്ളികളിൽ യാക്കോബായ വിഭാഗും പ്രപ്പ്പ്പേശിച്ചതിനെ തുടർന്നാണ് ഗവൺമെന്റ് ഇന്ന് വീണ്ടും ഇരു വിഭാഗങ്ങളെയും ചർച്ചക്ക് വിളിച്ചത് പ്രശ്നത്തിൽ സുപ്രീം കോടതിവിധി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓർത്ത്ഡോക്സ് വിഭാഗം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു

നേരത്തെ നടന്ന ചർച്ചയിലും ഓർത്തഡോക ്സ് വിഭാഗം പങ്കെടുത്തിരുന്നില്ല

ഇവരുടെ കുടുംബങ്ങൾക്കും ഇൻഷൂറൻസ് പരിരക്ഷ ലഭിക്കും ഈ മാസം തന്നെ പദ്ധതിയിലെ അക്രഡിറ്റ് ആശുപത്രികളുടെ പൂർണ്ണ പട്ടികയാകും നോർത്ത് മലബാർ ചേമ്പർ ഓഫ് കോമേഴ്സിന്റെ അഗ്രി മീറ്റ് കണ്ണൂരിൽ തുടങ്ങി ജെയിംസ് മാത്യു എം

കണ്ണൂർ വിമാനതാവളം വഴി കൂടുതൽ കാർഷിക ഉൽപന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും കാർഷിക രംഗത്തെ പുതിയ സംരഭങ്ങളും മീറ്റിൽ ചർച്ച ചെയ്യുന്നുണ്ട് വിവിധ കാർഷക ഉത്പാദക സംഘങ്ങളുടെ പ്രതിനിധി കളുൾപ്പെടെ കാർഷിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കാർഷിക ഉത്പാദക സംഘങ്ങളുടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കേരളത്തിൽ കാർഷിക മേഖലയുടെ വികസനത്തിന് ഏറെ സഹായകര മാവുന്നുണ്ടെന്ന് മീറ്റിൽ പങ്കെടുത്ത ബംഗളുരു കാർഷിക ഗവേഷണ കേന്ദ്രം ഡയരക്ടർ ഡോ

കർഷക ഉൽപാദൃക് സൃഘങ്ങൾ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ തപാൽ ബാങ്കുകളെ ചെറുകിട ധനകാര്യ ബാങ്കുകളാക്കി മാറ്റാൻ ത്പാൽ വകുപ്പ് തീരുമാനിച്ചു ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറു ലോണുകൾ ലഭ്യമാക്കുകയാണ് തിപ്പാൽ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്

ജമ്മു കൾ ്മീരിലെ ശ്രീനഗറിൽ നടന്ന വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ വാർഷിക സമ്മേളനത്തിലാണ് തപാൽവകുപ്പ് ഈ തീരുമാനം കൈക്കൊണ്ടത് ട്രോളിംങ്ങ് നിരോധനത്തിനുശേഷം കൊല്ലത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾക്ക് ഭേദപ്പെട്ട രീതിയിൽ മത്സ്യങ്ങൾ ലഭിച്ചു അതേസമയം ശക്തികുളങ്ങര ഹാർബറിൽ പ്രവേശിക്കുന്നതിൽ കാൽനടയാത്രക്കാർക്ക് ചുങ്കം ഏർപ്പെടുത്തിയത് പ്രതിഷേധത്തിനിടയാക്കി

മാരകായു ധ ങ്ങളു മായി എസ് എഫ് ഐ പ്രവർത്ത കർ തമ്മിലടിച്ചതിനെ തുടർന്ന് ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ കുന്നം കുളം പഴഞ്ഞി എം ഡി കോളേജ് അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടു

ഏതാനും പ്രതികളുടെ വീടുകളിൽ പൊലീസ് പരിശോധന നടത്തിയെങ്കിലും ആരെയും പിടികൂട്ടിയില്ല തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോള്ളേജിന് സമാനമായ വിധം അക്രമം ഉണ്ടായ പഴഞ്ഞി കോളേജിൽ എസ് എഫ്ഐ ക്ക് എതിരെ വിദ്യാർത്ഥി പ്രതിഷേധം അണപ്പൊട്ടിയ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനും തുടർനടപടികൾ തീരുമാനിക്കുന്നതിനും എസ്എഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും മലപ്പുറം ജില്ലയിലെ തുവ്വൂർ പഞ്ചായത്തിന് കേന്ദ്ര ഹരിതട്രി ബ്യൂണലിന്റെ അംഗീകാരം ശുചിത്വകാര്യങ്ങളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിനാണ് നേട്ടം ജില്ലയിലെ മാറാഞ്ചേരി ചാലിയാർ പഞ്ചായത്തുകൾക്ക് നേരത്തെ ഈ അംഗീകാരം ലഭി ച്ചിട്ടുണ്ട്

സംസ്ഥാന സുബ്രതോകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിവിധ വിഭാഗങ്ങളിൽ ജേതാക്കളായ മലപ്പുറം ചേലേമ്പ്ര നാരാ യണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കന്റി സ്കൂൾ കോഴി ക്കോട് നടക്കാവ് വൊക്കേഷണൽ ഹയർസെക്കന്ററി സ്കൂൾ എടത്തനാട്ടുകര ജി

എച്ച്

എന്നിവരെ മന്ത്രി സി രവീ ന്ദ്രനാഥ് അഭിനന്ദിച്ചു ഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സര ത്തിൽ കേരളത്തിന് അഭിമാനകരമായ വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്നും മന്ത്രി ആശംസിച്ചു